പൌരത്വ ഭേദഗതി നിയമത്തിന് പിൻതുണ തേടിയുള്ള ബി ജെ

ഗുരുദ്ധാര നങ്കണ സാഹിബിലെ ആൾക്കൂട്ട ആക്രമണത്തിന്റെ സ്ഥിതിഗതികൾ നേരിട്ട് ഖ്ില്യിരുത്താൻ നാലംഗ എസ്

മഹാരാഷ്ട്രയിൽ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി എൻ സി പിയ്ക്ക് ആഭ്യന്തരവും ധനകാര്യവും കോൺഗ്രസ്സിന് റവന്യൂവും പൊതുമരാമത്തും

ജെ

പത്ത് ദിവസത്തെ പൊതുജന സ്പ്പർക്ക പരിപാടി ആരംഭിച്ചു

ജെ

പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദ ഗാസിയാബാദിൽ പരിപാടിക്ക് തുടക്കം കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന കുറിക്കും

ജെ

പ്രചാരണവേളയിൽ പാർട്ടി നേതാക്കളും പ്രവർത്തകരും മൂന്ന് കോടി കുടുംബങ്ങളുടെ പിന്തുണ തേടും

ഇതിന്റെ പേരിൽ അനാവശ്യമായ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുന്നതെന്ന് ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം അറിയിച്ചു

ആൾക്കൂട്ട ആക്രമണത്തെ ശ്രീക്തമായി അപലപിച്ച എസ്

മേധാവി കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പാക് ഗവൺമെന്റിനോട് ്അഭ്യർത്ഥിച്ചു ഗുരുദാരയ്ക്കുനേരെയുണ്ടായ ആക്രമണം സിഖ് സമൂഹത്തിന്റെ വികാരത്തെ മുറിവേൽപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്ര സംഘടനയിലും ഈ വിഷയം എസ്

ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ശ്രീ

സിഖ് മത സ്ഥാപകനായ ഗുരുനാനാക് ദേവ് ജനിച്ച സ്ഥലമാണ് ആക്രമിക്കപ്പെട്ട നങ്കണ സാഹിബ് ഗുരുദാര ഗുരുദാരയ്ക്കു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചിട്ടുണ്ട് സിഖ് സമുദായ അംഗങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി ഉടൻ നടപടികൾ കൈക്കൊള്ളണമെന്ന് പാകിസ്ഥാൻ ഗവൺമെന്റിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടു

യാത്രക്കാർക്കോ കോർപ്പറേറ്റുകൾക്കോ ഏജന്റുമാർക്കോ ഇക്കാര്യത്തിൽ വേണ്ടെന്നും വിപുലീകരണമുൾപ്പെടെയുള്ള ആശങ്ക പ്രവർത്തനങ്ങളുമായി എയർ ഇന്ത്യ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ദേശീയ വിമാന കമ്പനിയായ്ക്കു എയർ ഇന്ത്യ ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർക്കൂല്ൻ ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിനും വലിയ സംഭാവനകൾ നൽകാൻ കഴിയുന്ന വിനോദ സഞ്ചാര മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുള്ള ശക്തമായ നടപടികൾ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തുടരും ഇ വിസാ നിരക്ക് കുറച്ചതും ഹോട്ടലുകളുടെ ജി

ടി നിരക്ക് കുറച്ചതും കഴിഞ്ഞ വർഷത്തെ മന്ത്രാലയത്തിന്റെ നേട്ടങ്ങളായി വിലയിരുത്തി

കസ്തൂരി രംഗൻ കമ്മിറ്റി ദേശീയ വിദ്യാർട്ട്യാസ നയത്തിന്റെ കരട് ഗവൺമെന്റിന് സമർപ്പിച്ചിരുന്നു ജനൻറ്റ്പ്പോറ്റുപാതികമായി വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുതിയ വിദ്യാഭ്യാസ നയത്തിന് ഗവൺമെന്റ് തുടക്കം കുറിച്ചിരിക്കുകയാണ് മികവുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ കഴിവ് അറിവ് എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുമായി പ്രധാൻമന്ത്രി ഇന്നവേറ്റീവ് ലേണിംഗ് പ്രോഗ്രാം ധ്രുവ് എന്ന പേരിൽ ഒരു പദ്ധതി മാനവ വിഭവശേഷി മന്ത്രാലയം നടപ്പിലാക്കിയിട്ടുണ്ട്

മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ സമർപ്പിച്ച് മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും പട്ടിക ഗവർണർ ഭഗത് സിംഗ് ഘോഷിയാരി അംഗീകരിച്ചു

ഉപമുഖ്യമന്ത്രിയും എൻ സി പി നേതാവുമായ അജിത് പവാർ ധനകാര്യം ആസൂത്രണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യും നിയമസഭയിലേക്ക് കന്നി പ്രവേശനം നടത്തിയ ആദിത്യ താക്കറേയ്ക്ക് പരിസ്ഥിതി ടൂറിസം വകുപ്പുകൾ നൽകി മുഖ്യമന്ത്രിയുടെ പുത്രൻ കൂടിയ ആദിക്യുട്ട് പ്രോട്ടോകോൾ വകുപ്പും കൈകാര്യം ചെയ്യും റെവന്യൂ വകുപ്പ് മുതി്ർന്ന കോൺഗ്രസ്സ് നേതാവ് ബാലാസാഹെബ് തൊറാട്ടിനാണ്

പൊതുമരാമത്ത് വകുപ്പ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്ര്സ്സ് നേതാവുമായ അശോക് ചവാനാണ് നഗരവികസനം കൃഷി വൃവസായം എന്നിവ ഉൾപ്പെടെ സുപ്രധാന വകുപ്പുകൾ എൻ

ജെ

യുടെ മുതിർന്ന നേതാവുമായ ഡോ മുരളി മനോഹർ ജോഷിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജന്മദിനാശംസകൾ നേർന്നു രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിന് തന്റെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിലൂടെ നിരവധി സംഭാവനകൾ നൽകാൻ ശ്രീ ജോഷിക്ക് സാധിച്ചുവെന്നും ജന്മദിനത്തിൽ ആയുരാരോഗൃ സൌഖ്യം നേരുന്നതായും പ്രധാനമന്ത്രി തന്റെ ടിറ്ററിൽ കുറിച്ചു

മുരളി മനോഹർ ജോഷിയെ പോലുള്ള നേതാക്കൾക്കൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചതിന് താൻ കൃതാർത്ഥനാണെന്നും ശ്രീ മോദി പറഞ്ഞു

നൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടത്തീന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കവേയാണ് അപകടമുണ്ടായത്

പട്രോളിംഗിനിടെ മ്യാൻമാറിൽ നിന്ന് ഇന്തൃയിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിയിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത് ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല നിയമ നടപടികൾക്കായി മയക്കുമരുന്ന് ആസ്സാം റൈഫിൾസിന് കൈമാറിയിട്ടുണ്ട്

ഇതിൽ നാല് പേർ മഹാരാഷ്ട്രയിൽ നിന്നും ബാക്കിയുള്ളവർ ഝാർഖണ്ഡ് കർണ്ണാടക തമിഴ്നാട് തെലുങ്കാന ഉത്താരാഖണ്ഡ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്

ബ്രസൽസിന് ഇറാൻ വിദേശകാര്യമന്ത്രി മൊഹമ്മദ് ജവാദ് സരീഫുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ബോറലിന്റെ പ്രതികരണം അതേസമയം അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ സൈനിക ജനറൽ ഖാസിം സുലൈമാനിയുടേയും മറ്റ് സൈനിക ഉദ്യോഗസ്ഥരുടേയും നിര്യാണത്തിൽ ദുഖം രേഖപ്പെടുത്തി ഇറാഖിൽ ദ ദിവസത്തെ ദേശീയ ദുഖാചരണത്തിന് ഇറാഖ് പ്രധാനമന്ത്രി ആദിൽ അബ്ദുൾ മഹ്ദി ആഹാനം ചെയ്തു അതേസമയം ഇറാനുമായി ആസന്നമായ യുദ്ധത്തിനെതിരെ അമേരിക്കയിലും പ്രതിഷേധങ്ങൾ നടക്കുകയാണ്

ഉചിതമായ സ്ഥലത്തും ഏമ്ത്തും പ്രതികാരം ചെയ്യുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ലോകം ഭീതിയോടെയാണ് നോക്കി കാണുന്നത്

ഓസ്ട്രേലിയയ്ക്ക് എതിരായ പരമ്പര സ്വന്തമാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ശ്രീലങ്ക ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നത് വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പരയിൽ വിജയം ഇന്ത്യയ്ക്കായിരുന്നു മത്സരത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായികഴിഞ്ഞു